നെടുങ്കണ്ടം കസ്റ്റഡി മരണ കേസിൽ മൃതദേഹം പുറ ത്തെടുത്ത് പരിശോധിക്കണമെന്ന് ജുഡീഷ്യൽ കമ്മീ ഷൻ

സംസ്ഥാനത്തെ കോടതിക്കളിൽ ് ഇന്ന് ലോക് അദാലത്ത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസ്സുകൾ പരിഗണിക്കുന്നു

അംബേദ്കർ നിയിമ് സ്ർവ്വകലാശാലയുടെ ഓണററി എൽ

ബിരുദം രാഷ്ട്രപതി രാംനാഥ് കോവി ന്ദിൽ നിന്നും ഗവർണർ പി സദാശിവം ഏറ്റുവാങ്ങി

നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് ഇന്ന് വൈകിട്ട് ഉദ്ഘാ ടനം ചെയ്യും കരിപ്പൂരിൽ നിന്ന് മദീനയിലേക്ക് ഇന്ന് നാല് വിമാനങ്ങൾ കൂടി

പ്രമുഖ ഛായാഗ്രാഹകൻ എം

രാധാകൃഷ്ണന് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അന്ത്യാജ്ഞലി

വളരെക്കാലമായി തീർപ്പാകാതെ കിടക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായാണ് ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നത്

തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ നെടുമങ്ങാട് നെയ്യാറ്റിൻകര കോടതി കേന്ദ്രങ്ങളിൽ ലോക് അദാലത്ത് നടക്കുന്നു

ജില്ലാ നിയമസേവന അത്തേറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ എ ജൂബിയ ആകാ്ശവാ്ണിയോട്

ബിരുദം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും ഏറ്റുവാങ്ങി ചെന്നൈയിലെ തമിഴ്നാട് ഡോ അംബേദ്ക്കർ നിയമ സർവ്വകലാശാലയിലാണ് ബിരുദദാന ചടങ്ങ് നടന്നത് ചെന്നൈ ഗവൺമെന്റ് ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഡോ

തമിഴ്നാട് ഗവർണ്ണർ ബൻപ്യാരിലാൽ പുരോഹിത് മുഖ്യമന്ത്രി ഇ

പളനിസ്വാമി നിയമമന്ത്രി സി

ഷൺമുഖം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം റോഡ് വികൻനും കോഴിക്കോടിന്റെയും വയനാടി ന്റെയും മാത്രം വികസനമായ്ക്ക് ഗവൺമെന്റ് കാണുന്നതെന്നും ഇത് കേരളത്തിന്റെ പൊതുപ്പൊയ് വികസനത്തിന് ആവശ്യമാണെന്നും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു കോഴിക്കോട് ഈങ്ങാപ്പുഴ കണ്ണോത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായി രുന്നു മന്ത്രി ചുരം റോഡ് ഉദ്ഘാടനത്തിന് സ്ഥലം എം പി കൂടിയായ രാഹുൽഗാന്ധിയെ പ്രോട്ടോകോൾ പ്രകാരമാണ് ക്ഷണിച്ചതെന്നും ക്ഷണം സ്വീകരിച്ച അദ്ദേഹം ഗവൺമെന്റിനെ അഭിനന്ദിച്ച് മറുപടി നല്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി

നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കാര്യമന്ത്രി ഡോ

ടി ജലീൽ നിർവ്വഹിക്കും ഹജ്ജ് ഹജ്ജ് കർമ്മത്തിന് പോകുള്ളൂ ലക്ഷദ്വീപിൽ നിന്നുള്ള ഹാജിമാർ ഇന്ന് ഉച്ചയോടെ കൊച്ചി നെട്ടുമ്പാശ്ശേരിയിലുള്ള ഹജ്ജ് ക്യാമ്പിലെത്തും

കുറിച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഷാഡോ പോലീസ് ഇൻട്രോ അന്താരാഷ്ട്ര വിനോദ സഞ്ചാര കേന്ദ്രമായ മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഷാഡോ പോലീസിന്റെ ലഭ്യമായി സേവനം തുടങ്ങി

രാധാകൃഷ്ണന് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അന്ത്യാഞ്ജലി തിരൂപ്പ്ന്റ്തപുരത്ത് കലാഭവൻ തീയേറ്ററിൽ പൊതുദർശനത്തിന് വിച്ച് ഭ്യാതിക ശരീരത്തിൽ നൂറ് കണക്കിന് ചലച്ചിത്ര പ്രവർത്തുകർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

കൊല്ലം ജില്ലയിലെ പുനലൂർ തൊളിക്കോട് സ്വദേശിയായ എം

രാധാകൃഷ്ണൻ ജി അരവിന്ദൻ ഷാജി എൻ

ദേശാടനം കരുണം അടയാളങ്ങൾ ബയോസ്കോപ്പ് വീട്ടിലേയ്ക്കുള്ള വഴി തുടങ്ങിയവ ശ്രദ്ധേയ ചിത്രങ്ങൾ

ഇതിന്റെ ഭാഗമായി പണമിടപാടുകൾ പൂർണമായും ഡിജിറ്റൽ വൽക്കരി ക്കുന്നതിന് ജില്ലയിലെ വില്ലേജ് ഓഫീസർമാർക്ക് ഇ പോസ് മെഷീനുകൾ വിതരണം ചെയ്യും

പൊക്കാളി നെൽ കൈപ്പാട് അരി വയനാടൻ ജീരകശാല അരി വയനാടൻ ഗന്ധകശാല അരി തിരുവല്ല പതിയൻ ശർക്കര മറയൂർ ശർക്കര വാഴക്കുളം കൈതച്ചക്ക നിലമ്പൂർ തേക്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം എന്നിവയാണ് ഇതിന് മുമ്പ് ഭൌമസൂചക പദവി ലഭിച്ചിട്ടുളള കേരളീയ കാർഷിക ഉൽപ്പന്നങ്ങൾ

കഴക്കൂട്ടത്തെ സൈനിക സ്കൂൾ പരേഡ് മൈതാനത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് എയർ മാർഷൽ ബി

ഇന്ന് രാവിലെ എയർ മാർഷൽ ബി സുരേഷിന് ഗാർഡ് ഓഫ് ഓണർ നൽകി വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചു